പദ്ധതിയിൻകീഴിൽ തെരഞ്ഞടുക്കപ്പെട്ട കർഷകർക്ക് പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു

കർഷകരുടെ ചെറിയ പ്രശ്നങ്ങൾപോലും ഈ ഗവൺമെന്റ് ഗൌരവത്തോടെയാണ് കണ്ടത് ജയ് ജവാൻ ജയ് കിസാൻ എന്നതാണ് മന്ത്രം ഇട്ടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇത്

എന്നാൽ ഇതുകൊണ്ട് വളരെ കുറച്ച് പേർക്കുമാത്രമേ പ്രയോജനം ലഭിക്കു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ള ഇത്തരം വാഗ്ദാനങ്ങൾ പൊള്ളയാണ് അതിൽ തന്റെ ഗവൺമെന്റ് വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു

എ ഗവൺമെന്റിന്റെ ഇത്തവണത്തെ ഇടക്കാല ബഡ്ജറ്റിലാണ് പ്രധാനമന്ത്രി കിസ്സാൻ പദ്ധതി പ്രഖ്യാപിച്ചത്

രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് രണ്ട് ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ളവർക്കാണ് ആനുകൂല്യത്തിന് അർഹത

ഗൊരഖ്പൂർ എയിംസ് ഗൊരഖ്പൂർ മെഡിക്കൽകോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടം എന്നിവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഗൊരഖ്പൂർ അസംഗർ എക്സ്പ്രസ്സ് വേ ഗൊരഖ്പൂർ കണ്ട്ല വാതക പൈപ്പ് ലൈൻ എന്നിവയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

വരുന്ന രണ്ടുമാസങ്ങളിൽ രാജ്യം തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിശദമായ റിപ്പോർട്ടിലേക്ക് രാജ്യം നേരിടുന്ന ഭീകരതയെന്ന് പെല്ലുവിളിയെ ജാതി മതം പ്രാദേശികവാദം തുടങ്ങിയ എല്ലാത്തരം കൃഷ്ടിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നമുക്ക് നേരിടേണ്ടതുണ്ടെന്നും രാജ്യത്തെ ജനങ്ങളുടെ സൂരക്ഷയ്ക്കായി ധീരജവാന്മാൻമാർ ഉദാത്തമായ ജീവത്യാഗമാണ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സ്മാരകം മുന്ന് വൃത്തങ്ങളിലായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യ ചക്രത്തിൽ ഓരോ സൈനികന്റെയും ജനനം മുതൽ രക്തസാക്ഷിത്വം വരെയുള്ള ജീവിതം ചിത്രീകരിച്ചിരിക്കുന്നു രണ്ടാമത്തെ ചക്രം സൈനികരുടെ സാഹസികതയും ധൈര്യവും വൃക്തമാക്കുന്നതാണ്

ജംഷഡ്ജി റ്റാറ്റ യുടെ വീക്ഷണങ്ങൾ കാര്യം ശക്തമായിരുന്നുവെന്നും ഇന്ത്യയുടെ നല്ല ഭാവിയ്ക്കായി ശക്തമായ അടിത്തറ സൃഷ്ടിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നതായും പ്രധാനമന്ത്രി സ്മരിച്ചു പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ ജന്മദിനവും ഈമാസം വന്നെത്തുകയാണ് ഇന്ത്യ നേരിട്ടിരുന്ന ഏറ്റവും വലിയ വിഷമസന്ധിയിൽ രാജ്യത്തിന്റെ ഭരണസാരഥ്യം വഹിക്കാനുള്ള നിയോഗമാണ് മൊറാർജി ദേശായിക്കുണ്ടായിരുന്നത് ജനാധിപത്യംതന്നെ ഭീഷണിയിൽ അകപ്പെട്ട നാളുകളിൽ അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ മൊറാർജി ദേശായി അക്ഷീണം പ്രയത്നിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു വരാനിരിക്കുന്ന രണ്ട് മാസങ്ങൾ രാജ്യം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഉത്സവലഹരിയിലായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ജമി അത് അഹലെയുടെ വൈസ് പ്രസിഡന്റ് മൌലാന മുഷ്താഹ് അഹമ്മദ് വീരിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു

ദുരന്തം നടന്ന ഗോലാഖട്ട് ജോർഘട്ട് ജില്ലകളിൽ എക്സൈസ് മന്ത്രി പരിമൾ ശുക്ലബൈദ്യ സന്ദർശനം നടത്തുകയാണ് മദ്യത്തിന്റെ സാമ്പിളുകൾ ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി ശേഖരിച്ചു സംഭവത്തിനു പിന്നിൽ അട്ടിമറി സാദ്ധ്യത ഇതുവരെ അധികൃതർ തള്ളിക്കളഞ്ഞിട്ടില്ല സംസ്ഥാന ഗവൺമെന്റും എക്സൈസ് വകുപ്പും മദ്യ ദുരന്തത്തിൽ വ്യത്യസ്ഥ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്

എഫിന്റെ കോബ്ര യൂണിറ്റും ജില്ലാ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് തീവ്രവാദികളെ വധിച്ചത് ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്

ശുചിത്വമേഖലയിൽ മികച്ച സേവനം നടത്തിയ സന്നദ്ധ പ്രവർത്തക്ടർ ജീവനക്കാർ പോലീസ് നാവിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് ചടങ്ങിൽ ഷൂമസ്ക്കാരങ്ങൾ സമ്മാനിക്കും

ലക്നോവിലെ അപ്പോളോ മെഡിക്സ് സൂപ്പർ സ്പെഷ്യലിറ്റി ആശുപത്രി രാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഒരാഴ്ചയ്ക്കുള്ളിൽ താപനില മുന്ന് ഡിഗ്രിയോളം വർധിച്ചെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിക്കുന്നത്

മാർച്ച് ഏപ്രിൽ മേയ് മാസങ്ങളെയാണ് സംസ്ഥാനത്ത് വേനൽക്കാലമായി കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം വിലയിരുത്തുന്നത് എന്നാൽ ഇത്തവണ ഫെബ്രുവരി പകുതി പിന്നിട്ടപ്പോഴേക്കും സ്ഥിതിമാറി

ഇടവെട്ടി ഗ്രാമ പഞ്ചായത്തിലെ ശുദ്ധ ജല പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയിട്ടയിരുന്നു അദ്ദേഹം

വകുപ്പിട്ടെട്ട പൂർത്തിയാക്കാൻ വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക സഹ്യെത്തിനായി വിവിധ ഏജൻസി കളുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും ്അദ്ദേഹ്ം പറഞ്ഞു